തയ്യാറായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗസപ്പെ കോണ്ടെയുമായുള്ള വെർച്ചൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു

അമേരിക്കയിൽ വോട്ടെണ്ണൽ തുടരുന്നു അന്തിമ ഫലം കാത്ത് അമേരിക്കൻ ജനത

ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗസപ്പെ കോണ്ടെയുമായുള്ള വെർചാൽ ഉഭയകക്ഷി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡാനന്തര ലോകത്തിലെ വെല്ലുവിളികൾ നേരിടാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും നിം തയ്യാറായിരിക്കണമെന്ന് ശ്രീ

കോവിഡ് മഹാമാരി ഇറ്റലിയിൽ ഉണ്ടാക്കിയി ജീവഹാനിക്കും നഷ്ടങ്ങൾക്കും ഇന്ത്യൻ ജനതയുടെ പ്പേരിൽ പ്രധാനമന്തി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടൂത്തി ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും കോവിഡിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും തുടങ്ങും മുൻപ് തന്നെ ഇറ്റലി കോവിഡ് ദുരിതം അനുഭവിക്കുകയായിരുന്നു എന്നാൽ ഇറ്റലി അതിവേഗം കോവിഡിൽ നിന്നും പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെയെത്തിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

കോവിഡ് മഹാമാരി അവസാനിച്ചതിന് ശേഷം ഒരു പുതിയ ലോകമായിരിക്കും നമുക്ക് മുന്നിലുണ്ടാവുകയെന്നും കാലാനുസൃതമായ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണമെന്നും വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ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

കൂടുതൽ പേർ ചികിത്സയിലുള്ളത് മഹാരാഷ്ട്രയിലാണ്

ഇന്ന് എട്ട് പുതിയ ഹോട്ട് സ്പ്ലോട്ടു്കൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള അമേരിക്കയിൽ പുതുതായി ഏഴായിരത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്തൃ

കോവിഡ് നിരീക്ഷണത്തിൽ ഉള്ളവർക്ക് തപാൽ വോട്ടിനുള്ള സൌകിര്യ്മൊരുക്കും

കേരളത്തിൽ ഇന്ന് മുതൽ മാതൃകാപെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ആറുവരെയാണ് പോളിംഗ് എന്നാൽ നക്സൽ ബാധിത ജില്ലകളായ രാംനഗർ മഹിഷി തുടങ്ങിയിടങ്ങളിൽ പോളിംഗ് പ്രൈകുന്നേരം നാലുമണിക്ക് അവസാനിക്കും വാത്മീകി നഗർ പാർലമെന്റ് മണ്ഡലത്തിൽ നാളെ ഉപതെരഞ്ഞെടുപ്പും നടക്കും

അതിനിടെ പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർഥ്യിട്ട് പിന്തുണയ്ക്കുന്ന സംസ്ഥാനമായ ജോർജിയയിൽ ഡെമ്മോക്രാ്റ്റുകൾ മുന്നിലെത്തി

പെൻസിൽവാനിയ അരിസോണ വടക്കൻ കരോലിന നെവാദ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്

തപാൽ വോട്ടുകൾ പൂർണമായും എണ്ണി തീരാത്തിനാൽ അന്തിമ ഫലം ഇനിയും വൈകാനാണു സാധ്യത

നാഷണൽ ഡിഫൻസ് കോളേജ് സംഘടിപ്പിച്ച വെബ്ബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഴക്കൻ ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണരേഖ പ്രദേശത്ത് ചൈനീസ് സേന അനാവശ്യമായി നടത്തിയ പ്രകോപനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈനികരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യഥാർത്ഥ നിയന്ത്രണരേഖയിൽ യാതൊരുവിധ മാറ്റവും ഇന്ത്യ അനുവദിക്കില്ലെന്നും രാജൃം പുരോഗതി പ്രൊപിക്കുന്നത് അനുസരിച്ച് സുരക്ഷാ വെല്ലുവിളികളും വർദ്ധിക്കുമെന്നും സംയുക്ത സൈനിക മേധാവി വൃക്തമാക്കി

പുൽവാമ ജില്ലയിലെ ലാൽപോര ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യാ ഉണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിനെത്തുടർന്ന് ഇന്നലെ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് സംഭവം ഒരു ഭീകരവാദി കീഴടങ്ങി

ശ്രീ ചൈതന്യദേവ് ശ്രീരാമകൃഷ്ണൻ സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ മഹാ ആത്മീയ നേതാക്കളുടെ നാടായിരുന്നു ഇത് പശ്ചിമ ബംഗാളിന്റെ നഷ്ടപ്പെട്ട പൈതൃകവും മഹത്വവും തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ഡ്ർഹി മുൻ ചീഫ് സെക്രട്ടറി എം

കുട്ടിയുടെ നേതൃത്വത്തിൽ കേന്ദ്രസർക്കാർ രൂപീകരിക്കുന്ന കമ്മീഷൻ വായു ഗുണനിലവാരം ഉയർത്തുന്നത് സംബന്ധിച്ച പഠനം നടത്തുമെന്നും ശ്രീ ജാവദേക്കർ പറഞ്ഞു

കോവിഡ് പശ്ചാത്തലത്തിൽ ജനപങ്കാളിത്തം പരിമിതപ്പെടുത്തുമെങ്കിലും ആഘോഷങ്ങൾക്ക് മങ്ങൽ ഏൽക്കുകയില്ലെന്ന് സർക്കാർ അറിയിച്ചു

എസ് യെദ്യൂരപ്പ കരാറിൽ ഒപ്പുവച്ചു

അബുദാ്ബിയിലെ ഷെയ്ഖ് സായിദ് മൈതാനത്ത് നടക്കുന്ന മത്സര്ത്തീൽ ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തിരഞ്ഞെടുക്കുക്യായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ജയിക്കുന്ന ടീം ഞായറാഴ്ച്ച്ഡൽഹിയുമായി ഏറ്റുമുട്ടും